മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ അശോക് ലവാസ സുശീൽ ചന്ദ്ര എന്നിവർ സംസ്ഥാനത്തെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ ജില്ലാ പൊലീസ് സൂപ്രണ്ടുമാർ എന്നിവരുമായി ചർച്ച നടത്തും സംസ്ഥാന ചീഫ് സെക്രട്ടറി പൊലീസ് മേധാവി എന്നിവരുമായി കമ്മീഷൻ നാളെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തും

കാശ്മീർ ലഡ്ടാക്ക് ജമ്മു എന്നിവിടങ്ങളിലെ ഡിവിഷണൽ കമ്മീഷണർമ്മാർമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ആദ്യ ഘട്ടങ്ങ്ങ്ളിൽ വോട്ടെടുപ്പ് നടത്തുന്ന പോളിംഗ് ബൂത്തുകളിലേയ്ക്ക് ആവശ്യ്മായ നടപടികൾ വിലയിരുത്തുകയും ചെയ്തു

അരുണാചൽ പ്രദേശിലെ പാസിഗഡിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രദേശത്തെ എല്ലാവർക്കും ശ്രീ മോദി നന്ദി അറിയിച്ചു ജനങ്ങളുടെ പിന്തുണയുള്ളതു കൊണ്ടാണ് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞത് സുരക്ഷയ്ക്കും വികസനങ്ങൾക്കും എൻ

കേന്ദ്രത്തിൽ വരണമെന്നാണ് അരുണാചൽ പ്രദേശിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അരുണാചൽ പ്രദേശ് തുടങ്ങിയ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ഏഷ്യയുടെ കിഴക്കേ കവാടം എന്ന നിലയിൽ വികസിപ്പിക്കാൻ ബി ജെ

കർഷകരോട് ഒരിക്കലും വിശ്വാസവഞ്ചന നടത്തിയിട്ടില്ലെന്ന് ശ്രീ

വിത്തിൽ നിന്ന് വിപണി വരെ എന്ന ആശയം ഉൾക്കൊണ്ട് തന്റെ ഗവൺമെന്റ് പി

കോൺഗ്രസിന്റെ പ്രകടന പത്രിക അതിന്റെ ഇരട്ടത്താപ്പാണ് വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

പഞ്ചാബിലെ നാല് ഇടങ്ങളിൽ സിറ്റിംഗ് എം

മാരായ സുനിൽ ജാഖർ സന്തോഷ് സിംഗ് ചൌധരി റവ്നീത് ബിറ്റു ഗുർജിത്ത് അജുല എന്നിവ്യരാണ്

ജെ

യുടെ ക്രിർൺ ഖേറിനോട് പരാജയപ്പെട്ടിരുന്നു

ധനകാര്യം ട്റിയിൽവേ പാർലമെന്ററികാര്യം എന്നീ വകുപ്പുകൾ അദ്ദേഹു ക്രെകാര്യം ചെയ്തിട്ടുണ്ട് ആം ആദ്മി പാർട്ടി ചാണ്ഡിഗ്ഡിൽ ഹർമോഹൻ ധവാനെ സ്ഥാനാർത്ഥിയാക്കിയിട്ടൂണ്ട് ധവാൻ മുമ്പ് ബി ജെ

ജെ

യായ കിരൺഖേർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ സഞ്ചയ് ടൺടൺ രണ്ടു പ്രാവശ്യം എം

യായും തുടർന്ന് സൊളിസിറ്റർ ജനറലുമായിരുന്ന സത്യപാൽ ജെയിൻ എന്നിവർ ചാണ്ഡിഗഡിൽ മത്സരരംഗത്തുണ്ട്

വയനാട്ടിൽ നിന്ന് ജനവിധി തേടുന്ന അദ്ദേഹം നാളെ പത്രിക സമർപ്പിക്കും

രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് എൻ

ജിയുടെ നേതൃത്വത്തിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കോഴിക്കോട് വിമാനം ഇറങ്ങുന്ന അദ്ദേഹം ഹെലികോപ്റ്ററിലാണ് വയനാട്ടിൽ എത്തുക മുതിർന്ന പാർട്ടി നേതാക്കളും നാളെ വയനാട്ടിൽ എത്തുന്നുണ്ട്

ബസ്റ്റ് ആന്റ് ക്രോംപ്റ്റൺ എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിനെതിരെ സി ബി ഐ അന്വേഷണത്തിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി

സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആന്ധ്രാ ബാങ്ക് കോർപ്പറേഷൻ ബാങ്ക് എന്നീ ബാങ്കുകളുമായി ബന്ധപ്പെട്ടാണ് വിശ്വാസവഞ്ചന തിരിമറി തുടങ്ങിയ കേസ്കൂകൾ ഇവർക്കെതിരെ ചുമത്തിയത്

ജീസ്പ്പെട്ട അഴിമതി ആരോപണങ്ങളുടെ അന്വേഷണം ജമ്മു കാർമ്മീർ ്പൊലീസിന്റെ ക്രൈംബ്രാഞ്ച് വിഭാഗത്തിന് കൈമാറാൻ ഗവൺമെന്റ് തീരുമാനിച്ചു സ്ഥാപനത്തിലെ അഴിമതി ഒഴിവാക്കാനും പിൻവാതിൽ നിയമനം അവസാനിപ്പിക്കാനും സ്ഥാപനത്തിൽ സുതാര്യതയും കാര്യക്ഷമതയുമുള്ള സംസ്കാരം കൊണ്ടുവരുന്നതിനും നടപടി സഹായകമാകുമെന്ന് ഒരു ഒദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു കമ്പനിക്കെതിരെ സിവിൽ കരാറുകളിലെ അഴിമതി ഉന്നത സ്ഥാനങ്ങളിൽ ഉൾപ്പെടെയുള്ള നിയമനങ്ങളിലെ ക്രമക്കേടുകൾ അധിക ചെലവ് തുടങ്ങിയവയെക്കുറിച്ച് നിരവധി പരാതികൾ ഉയർന്നതിനെ തുടർന്ന് വിഷയത്തിൽ അന്വേഷണം നടത്താൻ ഗവൺമെന്റ് നേരത്തേ ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു

ഇ ഇന്ത്യയ്ക്ക് കൈമാറി

എഫ് ക്യാമ്പാക്രമണത്തിലെ മുഖ്യ സൂത്രധാരനാണ് നിസാർ അഹമ്മദ് ഇന്ത്യയുടെ അഭ്യർത്ഥന മാനിച്ചാണ് യു

ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നിസാർ യു എ

നിസാറിനെ ദേശീയ അന്വേഷണ ഏജൻസി കസ്റ്റഡിയിൽ വാങ്ങി

മുതിർന്ന ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷർ ഉമേഷ് സിൻഹ ഹൈദരാബാദിൽ മാധ്യമപ്രവർത്തുകരെ അറിയിച്ചതാണ് ഇക്കാര്യം

ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ഒരു സംഘം മുതിർന്ന ഉദ്യോഗസ്സ്ഥർ ഇ ്ന്നലെ നിസാമാബാദിൽ എത്തി

വി പാറ്റുകളും സജ്ജമാക്കീയിട്ടുണ്ട്

ഇവരുടെ മോചനത്തിന് എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം പാകിസ്ഥാൻ ഹൈക്കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കുൽഭൂഷൺ ജാദവും മറ്റു നാല് പേരും ഉൾപ്പെടെയുള്ള സാധാരണ തടവുകാരുമായി നയതന്ത്ര ബന്ധം അനുവദിക്കണമെന്നും ഇന്ത്യ വീണ്ടും ആവശ്യപ്പെട്ടു പാകിസ്ഥാൻ ജയിലുകളിൽ കഴിയുന്ന ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളും തടവുകാരുമായി നയതന്ത്ര ബന്ധം സാധ്യമാകുന്നതിൽ അസാധാരണമായി കാലതാമസം ഉണ്ടാകുന്നതായി കേന്ദ്ര ഗവൺമെന്റ് പാകിസ്ഥാന് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നു പാകിസ്ഥാൻ കസ്റ്റഡിയിൽ ഉണ്ടെന്ന് ഇന്ത്യ വിശ്വസിക്കുന്ന കാണാതായ സ്വന്തം യുദ്ധതടവുകാരുടെ വിഷയവും വിദേശകാര്യ മന്ത്രാലയം ഉന്നയിച്ചിട്ടുണ്ട്

പാക് ജയ്യിലിൽ കഴിയുന്ന ഇന്ത്യൻ പൌരന്മാരെ സന്ദർശിക്കുന്നതിന്റുള്ള് മെഡിക്കൽ സംഘത്തിന് വിസ അനുവദിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു

എസ്

ഉപരിതല സമുദ്രാന്തർഭാഗ യുദ്ധ ദൌത്യങ്ങളിൽ ഇന്ത്യൻ സേനയ്ക്ക് ഈ ഹെലികോപ്റ്ററുകൾ ഉപയോഗപ്രദമാകും ഹെലികോപ്റ്ററുകളുടെ വിൽപ്പനയ്ക്ക് അംഗീകാരം നൽകിയതായി യു

ഹെലികോപ്ടർ വിൽപ്പന ഇന്ത്യ യു എസ് നയതന്ത്ര ബന്ധം ശക്തമാക്കാനുള്ള അമേരിക്കൻ വിദേശനയത്തെ സഹായിക്കുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വിജ്ഞാപനത്തിൽ പറയുന്നു നിർദ്ദിഷ്ട വിൽപ്പന പ്രദേശത്തെ അടിസ്ഥാന മിലിറ്ററി സന്തുലിതാവസ്ഥയിൽ മാറ്റം വരുത്തില്ലെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്

പ്രസിഡന്റിനെതിരെ ഏതാനും ആഴ്ചകളായി രാജ്യത്ത് പ്രതിഷേധ പ്രകടനങ്ങൾ രൂക്ഷമാണ് തന്റെ കാലാവധി അവസാനിച്ചതായി പ്രഖ്യാപിക്കാൻ ഭരണഘടനാ കൌൺസിലിനോട് പ്രസിഡന്റ് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു പ്രസിഡന്റിനെ അടിയന്തിരമായി നീക്കം ചെയ്യണമെന്ന് സൈനിക മേധാവി ആവശ്യപ്പെട്ടതിന് തൊട്ടുപിന്നാലെയാണ് പ്രസിഡന്റ് സ്ഥാനത്യാഗത്തിന് സന്നദ്ധത അറിയിച്ചത്

കൊല്ലപ്പെട്ട മുദ്ധ്യൂമ്പ്രവർത്തക ഗൌരി ലങ്കേഷിന്റെ കൊലപാതകവുമായി ബിണ്ഡ്പ്പെട്ട് ആർ

എസിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു്എന്ന് ആരോപണത്തെ തുടർന്നുള്ള കേസിലാണ് മുംബൈബ്ബെയിലെ പ്രാദേശിക കോടതിയുടെ നിർദ്ദേശം

പ്രവർത്തകൻ വിവേക് ചമ്പാനേർക്കർ ആണ് കേസ് ഫ്യൽ ചെയ്തത്

സി ഒളിമ്പിക് കാളിഫയർ രണ്ടാം റൌണ്ട് മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ഇൻഡോനേഷ്യയെ നേരിടും